ജെ പിയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥിനിർണയം ഈയാഴ്ചയോടെ പൂർത്തിയാകും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി നേതാവ് അമിത് ഷാ മുതിർന്ന പാർട്ടി നേതാക്കൾ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ലിസ്റ്റ് ഏകദേശം പൂർണമാണെന്നും ഉടൻ പ്രഖ്യാപിക്കുമെന്നും പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചു

ആർ ജെ ഡി നേതാവ് തേജസി യാദവും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം

ഇന്റർനെറ്റ് ആൻഡ് ഇന്ത്യയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് ഫേസ്ബുക്ക് ടിറ്റർ വാട്സ് ആപ്പ് ടിക്ടോക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ കമ്മീഷനെ തീരുമാനമറിയിച്ചത്

തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരും പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്ന് മുഖൃ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു ചട്ടം ലംഘിക്കുന്ന സമൂഹ മാധ്യമങ്ങൾക്കെതിരെ നിയമമനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു

ഈ മാസം പത്തിനാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്

എസ് മുരളീകൃഷ്ണൻ ഗാന്ധിനഗറിൽ പറഞ്ഞു

ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ സ്വീകരിച്ച നടപടികളെ കുറിച്ചും വൈറ്റ് ഹൌസ് വിശദീകരണം തേടി

ഭീകരരുടെ ഗ്രനേഡ് ആക്രമണത്തിലാണ് പരിക്ക് സോപോർ മേഖലയിൽ ഇന്ന് രാവിലെ തുടങ്ങിയ ഏറ്റുമുട്ടൽ തുടരുകയാണ് മേഖലയിൽ തീവ്രവാദി സാന്നിധ്യം ഉണ്ടെന്ന വ്യക്തമായ വിവരത്തെ തുടർന്ന് കരസേനയുടെയും ജമ്മുകാശ്മീർ പോലീസ് സ്പെഷ്യൽ ഗ്രൂപ്പിന്റെയും സി ആർ പി എഫിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വെടിവെയ്പ്പ് നടന്നതെന്ന് സുരക്ഷാ വക്താക്കൾ അറിയിച്ചു ഒന്ന് രണ്ട് ഭീകരരെ കുടുക്കാനായെന്ന് സൈനികവക്താക്കൾ പറഞ്ഞു

പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയയാണ് നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യൻ കോടതി നിയമങ്ങൾ സുതാര്യമാണെന്നും കേസിനോട് പാക്കിസ്ഥാൻ സഹകരിക്കുന്നില്ലെന്നും ശ്രീ അജയ് ബിസാരിയ ചൂണ്ടിക്കാട്ടി

കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം ജീവന് ഹാനി ഉണ്ടാക്കുന്ന തോക്കുകളുടെ വിൽപ്പന തടഞ്ഞിരുന്നതായി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ജെസിന്ത ആർതേൺ അറിയിച്ചു

നേപ്പാളിൽ തുടങ്ങിയ ഈ ആഘോഷം ദക്ഷിണേന്ത്യക്കാരും ഏക്റ്റെടുത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വർണാഭമായ ആഘോഷമായി ഹോളി മാറിക്കഴിഞ്ഞു

വോയിസ് വർണങ്ങൾ വാരിപ്പൂശി ഒരുമയുടെ സന്ദേശം നൽകിയാണ് ഉത്തരേന്തൃയിൽ ഹോളി ആഘോഷം

തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയം സൂചിപ്പിക്കുന്ന ആഘോഷം കൂടിയാണ് ഹോളി തണുപ്പ് കാലത്തിന് വിട നൽകി വേനൽ കാലത്തേയ്ക്ക് കടക്കുന്ന ഉത്സവം കൂടിയാണ് ഇത് കേരളത്തിൽ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമുള്ള ഗുജറാത്തി സമൂ ഹവും ഹോളി ആഘോഷിക്കുണ്ട് നിറമുള്ള പൊടികളും നിറം കലക്കിയ വെള്ളം ചീറ്റിക്കുന്ന തോക്കുകളുമായി കേരളത്തിലെ കൃാംപസുകളും ഹോളിയെ നെഞ്ചേറ്റിക്കഴിഞ്ഞു ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്ക് അവധി നൽകി രാഷ്ട്രിയ പാർടികളും പ്രമുഖ നേതാക്കളും ഹോളി ആഘോഷത്തിൽ പങ്ക് ചേരുന്നുണ്ട് ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ഇന്റർനെറ്റ് സെർച്ച് സൈറ്റായ ഗൂഗിൾ അവരുടെ ഡ്യൂഡിൽ ഹോളിയുടെ ചിത്രം നൽകി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

ഇന്നലെ രാത്രിയാണ് സംഭവം

ദന്തേവാഡയിൽ നിന്ന് കദേറിലേക്ക് പോകുകയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് മൈൻസ്ഫോടനത്തിൽ തകർന്നത്

ഇന്നലെ രാത്രി വൈകിയായിരുന്നു അപകടം ആഗ്രയിൽ നിന്ന് മീററ്റിലേക്ക് പോയ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് അപകടത്തിൽപ്പെട്ടാണ് നാല് പേർ മരിച്ചത് പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോയ കാർ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ച് മറ്റൊരാളും മരിക്കുകയായിരുന്നു

വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പാകെയാണ് നവോമി സത്യവാചകം ചൊല്ലിയത് ഇന്ത്യയിൽ നിന്നുള്ള പാഴ്സി ദമ്പതികളുടെ മകളായ അമേരിക്കയിലെ ഡെട്രോയിറ്റിലാണ് ജനിച്ചതും നവോമി വളർന്നതും

കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം പ്രജനനം തടയുന്നതിന് ആവശ്യമായ നടപടിയും സ്വീകരിച്ച് വരുന്നു

എല്ലാ ദിവസത്തെയ്യുഐ പ്രിവർത്തനങ്ങൾ വൈകിട്ട് മൂന്നിന് ബ്ലോക്ക് മെഡിക്കൽ ഓഫ്ീസ്ർമാരുടെ അധ്യക്ഷതയിൽ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ കെ സക്കീന നിർദ്ദേശം നൽകിയിട്ടുണ്ട്

പ്രചരണത്തിനെത്തുന്ന മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് സ്ഥിതികളും അവലോകനം ചെയ്യും

ജെ

യും തമ്മിൽ രഹസൃധാരണയുണ്ടെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാസർഗോഡ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജെ പി യും ആണ് ഇപ്പോൾ രഹസ്യധാരണയിൽ എത്തിയിരിക്കുന്നത്രെന്നും അദ്ദേഹം പറഞ്ഞു

നാളെ നടക്കുന്ന ആദ്യ റൌണ്ട് മത്സരത്തിൽ സ്പെയിനിന്റെ ജൌമെ മൂനാറിനെ പ്രജ്നേഷ് നേരിടും